കൊല്ലം ബൈപാസ് നാടിന് സമർപ്പിക്കും

ശബരിമല മകരവിളക്ക് സന്നിധാനത്ത് കനത്ത സുരക്ഷ

പരിശ്രമിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് മധ്യേഷ്യൻ രാഷ്ട്രങ്ങളുടെ ചർച്ചയിൽ തീരുമാനം

തുടർന്ന് കേന്ദ്ര പദ്ധതിയായ സ്വദേശി ദർശന്റെ കീഴിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂർത്തിയായ നവീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ പ്രധാനമന്ത്രി ഭാഗമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പ്രധാനമന്ത്രി ശിലാഫലകം അനാവരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

പ്രളയം കേരളത്തിലെ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട്

നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഫലമായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ

അക്കൌണ്ട് തുറക്കുക മാത്രമല്ല മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് സന്നിധാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വൈകിട്ട് ആറരയോടെ സന്നിധാനത്ത് എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ സ്വീകരണം നൽകും തുടർന്ന് തിരുവാഭരണം അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ പൊന്നമ്പല മേട്ടിൽ മകരജ്യോതി ദർശിക്കാം ആകാശത്ത് മകരനക്ഷത്രവും തെളിയും

ഇടുക്കിയിൽ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുല്ലുമേട് പ്പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് തീർഥാടകരുടെ സുരക്ഷയും സൌകര്യവും മുൻനിർത്തി പിവിധ വകുപ്പുകളുടെയും ഗ്രാമപ്പഞ്ചായത്തുകളുടെയും സഹികരണ്ത്തോടെയാണ് ഒരുക്കങ്ങൾ മകര വിളക്ക് കാണാനെത്തുന്നുവരുടെ സുരക്ഷക്കായി പൊതുമരാമത്ത് വകുപ്പ് പാഞ്ചാലിമേട്ടിലും പുല്ലുമേട്ടിലും ബാരിക്കേഡുകൾ നിർമിച്ചു വിവിധ ഗവൺമെന്റ് വകുപ്പുകളും കെ എസ്

സിയും മകരജ്യോതി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ചു വിധിയുടെ പശ്ചാത്തലത്തിൽ നിരവധി പ്രതിഷേധങ്ങൾക്കാണ് ഈ തീർത്ഥാടന കാലം സാക്ഷിയായത്

രാവിലെ ബോണക്കാട് ബേസ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകർ യാത്ര ആരംഭിച്ചു

സ്നാന ഘട്ടങ്ങളിലുട നീളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്

ഇന്ന് അർദ്ധരാത്രി മുതൽ സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വരുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി

സംവരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അടുത്ത അധ്യയന വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് ഒഴിവുകൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ്ശ് ജാവ്ദേക്കർ അറിയിച്ചു

ദിദിന സന്ദർശനത്തി നായി ഇന്നലെയാണ് ശ്രീമതി നിർമല സീതാരാമൻ പോർട്ട് ബ്ലയറിൽ എത്തിയത് കരയിലും വെള്ളത്തിലും ആകാശത്തും നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളും സംയുക്ത പരിശീലനവും മന്ത്രി വീക്ഷിക്കും സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന രാജ്യരക്ഷാമന്ത്രി ബ്രിച്ച് ഗുഞ്ജ് മിലിറ്ററി സ്റ്റേഷനു വേണ്ടിയുള്ള പാർപ്പിട സമുച്ചയത്തിന്റെ രണ്ടാംഘട്ടം ഉദ്ഘാടനം ചെയ്യും

ഉസ്ബക്കിസ്ഥാൻ തലസ്ഥാനമായ സമർക്കണ്ടിൽ നടന്ന ചർച്ചയിൽ വിദേശകാര്യമന്ത്രി സുഷമസ്വരാജും ഉസ്ബക്കിസ്ഥാൻ വിദേശകാര്യ മന്ത്രി അബ്ദുൾ അസീസ് കമിലോവും അധ്യക്ഷം വഹിച്ചു അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും ചർച്ചയിൽ പങ്കു ചേർന്നു യുദ്ധം വൻനാശം വിതച്ച അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക പുനരുദ്ധാരണ പ്രക്രിയയിൽ ഇന്ത്യയുടെ പ്രതിബന്ധത ശ്രീമതി സുഷമസ്വരാജ് ചർച്ചയിൽ വ്യക്തമാക്കി പ്രഭീകരവാദം ശക്തമായി ചെറുക്കുന്നതിന് ഇന്ത്യയും മറ്റ് മിധ്യേഷ്യൻ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനൊപ്പം ചേർന്ന് പുരിശ്രമിക്കുമെന്ന് ചർച്ചയ്ക്കു ശേഷം പുറത്തിറക്കിയ സംയുക്തീ പ്രസ്താവന വൃക്തമാക്കി

ബഹ്റൈനെതിരെ സമനില യെങ്കിലും നേടാനായാൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഏഷ്യാ കപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ കടക്കും നിലവിൽ ഗ്രൂപ്പ് എ യിൽ ആതിഥേയരായ യു എ

ഇ യോട് കീഴടങ്ങിയിരുന്നു

ലോക മുൻ നിര താരങ്ങളായ നൊവാക് ജോക്കോവിച്ച് സിമോണ ഹലേപ് സെറീന വില്യംസ് റഫേൽ നദാൽ റോജർ ഫെഡറർ തുടങ്ങിയവരെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു ഇന്ത്യൻ പ്രതീക്ഷകളായ പജ്നേഷ് ഗുണേശ്വരൻ ലിയാണ്ടർ പെയ്സ് രോഹൻ ബൊപ്പണ്ണ ദിവ്ജി ശരൺ എന്നീ താരങ്ങൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും

സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ കേരളിവും പാർഥിവ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തും സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി

ആദ്യ റൌണ്ടിൽ എട്ടിൽ നാലു മത്സരവും ജയിച്ചാണ് കേരളംകാർട്ടറിൽ എത്തിയത്

പിടിക്കപ്പെട്ടവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത വൃക്തിയാണ് പോറബാര നിവാസിയായ കിഫായത്തുള്ള ബുഖാറിയാണ് അറസ്റ്റിലാവരിൽ ഒരാൾ പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് തീവ്രവാദികളെ പിടികൂടിയതെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു